ഉത്തർപ്രദേശിലെ അമേഠിക്ക് പ്പുറമേ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി കേരള്ത്തിലെ വയനാട് മണ്ഡലത്തിലും മത്സരിക്കും

രാജ്യത്തെ ഏറ്റവും വലിയ നിരീക്ഷണ ഉപഗ്രഹമായ എമിസാറ്റ് നാളെ ഐ

വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ രാജൃത്തുടനീളം പ്രചാരണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ് താൻ രാജ്യത്തിന്റെ കാവൽക്കാരൻ ആകുന്നതുമൂലം പൊതുപണം ദുരുപയോഗം ചെയ്യാൻ ആരേയും അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി പ്രസ്താവിച്ചു ന്യൂഡൽഹിയിൽ നിന്നും മെയിൻ ഭി ചൌക്കിദാർ പരിപാടിയിലൂടെ രാജ്യത്തെ ജനങ്ങളെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി

യ്ക്ക് അവസരം നൽകി

കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നടപ്പാക്കിയ വിക്രസ്ന പ്രവർത്തനങ്ങൾ എല്ലാം ജനങ്ങളുടെ പിന്തുണയ്കൂടിയാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ജനങ്ങളുടെ പ്പൂർണ്ണ പിന്തുണയോടെ സഖ് ഭാരത് അഭിയാൻ പദ്ധതി ഒരു ജനകീയ പരിപാടി ആയി മാറി

കേരളത്തിലെ വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ജനവിധി തേടുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ

രാഹുൽഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഇടതുപാർട്ടികളെ എതിർക്കുവാൻ വേണ്ടിയുള്ളതാണെന്ന് സി

എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കുറ്റപ്പെടുത്തി

ജെ

ഗുജറാത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇന്ന് പ്രസിദ്ധീകരിച്ചത് മിതേഷ്ഭായ് പട്ടേൽ ആനന്ദ് മണ്ഡലത്തിലും ഗീതാബെൻ റത്വഛോട്ടാ ഉദയ്പൂർ മണ്ഡലത്തിലും ജനവിധി തേടും പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്

അധ്യക്ഷൻ അമിത്ഷാ കുറ്റ പ്പെടുത്തി ഉത്തർപ്രദേശിലെ നാഗിനയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ഹൈന്ദവ സമുദായത്തിനെതിരെ ഭീകരപ്രവർത്തനം ആരോപിക്കുക യാണ് എന്നാൽ സംഝോദ ട്രെയിൻ സ്ഫോടന കേസിൽ കുറ്റാരോപിതരായിരുന്ന സ്വാമി അസീമാനന്ദിനെയും മറ്റുള്ളവരെയും കോടതി നിരപരാധികളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇൌ വിഷയത്തിൽ കോൺഗ്രസ് രാജ്യത്തോട് മൂാപ്പ് പറയണമെന്നും ശ്രീ അമിത്ഷാ ആവശ്യപ്പെട്ടു

വിജയവാഡയിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ആന്ധ്രാപ്രദേശിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ വാഗ്ദാനം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ പാലിച്ചില്ലെന്ന് ശ്രീ

കേരളത്തിലെ വയനാട് മണ്ഡലത്തിൽ ശ്രീ രാഹുൽഗാന്ധി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുമെന്ന് എ ഐ

ഉത്തർപ്രദേശിലെ അമേഠി മണ്ഡലത്തിന് പുറമെയാണ് ശ്രീ

കേരള ത്തിലെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ രാഹുൽഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പ്രഖ്യാപിച്ചു കോൺഗ്രസ് നേതാക്കളായ എ

ആൻണി അഹമ്മദ് പട്ടേൽ കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സൂർജേവാല കെ

വേണുഗോപാൽ എന്നിവർ ന്യൂഡൽഹിയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്

രാഹുൽഗാന്ധി മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയശേഷമാണ് വയനാട്ടിൽ മത്സരിക്കാനുള്ള തീരുമാനം മാധ്യമ പ്രവർത്തകരെ കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചത് ദക്ഷിണേന്തൃയിൽ മത്സരിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് അധ്യക്ഷൻ അംഗീകരിക്കുകയായിരുന്നു എന്ന് എന്ന് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വും ഇടതുപക്ഷത്തിനോടുള്ള മത്സരമല്ല മറിച്ച് മോദിയുടെ പ്പിട്ട്ജ്ന്

വയനാട്ടിലെ രാഹുൽഗാന്ധിയുടെ സ്ഥാന്ദ്യൂർത്ഥിത്വം സംബന്ധിച്ച് നീണ്ട അനിശ്ചി തത്വം നിലനിന്ന സാഹച്ചര്യുത്തിൽ തീരുമാനം വേഗത്തിലാക്കണ മെന്ന് മുസ്തീംലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ആവശ്യപ്പെ ട്ടിരുന്നു ദക്ഷിണേന്തൃയിൽ മത്സരിക്കുന്നതിനുള്ള കോൺഗ്രസ് അധ്യക്ഷന്റെ തീരുമാനം ഏതുരീതിയിൽ പ്രതിഫലനം ഉളവാക്കു മെന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു കേന്ദ്രത്തിൽ ബി

യെ എതിർക്കുക എന്ന കോൺഗ്രസിന്റെ ലക്ഷ്യത്തിനെതിരാണ് ഈ നടപടിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

ഇതോടെ ബാങ്ക് ഓഫ് ബറോഡ രാജ്യത്തെ മൂന്നാമത്തെ വലിയ വായ്പ ദാതാവായി മാറും വിജയ ബാങ്കിന്റെയും ദേനാ ബാങ്കിന്റെയും നിക്ഷേപകർ ഉൾപ്പെടെയുള്ള ഉപഭോക്താക്കളെ ബാങ്ക് ഓഫ് ബറോഡയുടെ ഉപഭോക്താക്കളായി നാളെ മുതൽ കണക്കാക്കും എന്ന് ആർ

ഐ ശനിയാഴ്ച ഇറക്കിയ പ്രസ്താവനയിൽ വൃക്തമാക്കിയിട്ടുണ്ട്

രജൌരി ജില്ലയിലെ നിയന്ത്രണരേഖയിൽ പാക്സേന ഷെല്ലാക്രമണം നടത്തി് മേഖലയിലെ നൌഷേര സെക്ടറിൽ പാക്സേന ഷെല്ലാക്രമണവും വെടിവെയ്പും നടത്തിയതായി പ്രതിരോധ മന്ത്രാലയ വക്താവ് ലഫ്റ്റനന്റ് കേണൽ ദേവേന്ദർ ആനന്ദ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ത്യൻസേന തിരിച്ചും ആക്രമണം നടത്തി പാക്സേന പൂഞ്ച് ജില്ലയിലെ കൃഷ്ണ ഗാട്ടി സെക്ടറിൽ ഇന്നലെ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഒരു തദ്ദേശവാസിക്ക് പരിക്കേറ്റിരുന്നു

അപകടം ഉണ്ടായ ഉടനെ തദ്ദേശവാസികൾ രക്ഷാപ്രവർത്തനം നടത്തി

പരിക്കേറ്റവരെ ് കാഠ്മണ്ഡുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പി ച്ചിരിക്കുകയാണ് കാഠ്മണ്ഡുവിൽ നിന്നും സോലുകുംഭൂവിലേയ്ക്കു പോയ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്

സ്ഫ്ലോടന കാരണം അന്വേഷിച്ചുവരികയാണ്

പൈലറ്റ് സുരക്ഷിതനായി പുറത്തുവന്നുവെന്ന് സിരോഹി പൊലീസ് സൂപ്രണ്ട് കെ

രാജസ്ഥാനിലെ ഉത്തർലായി വ്യോമസേനാ കേന്ദ്രത്തിൽ നിന്ന് വിമാനം പറന്നുയർന്ന ഉടനെ എഞ്ചിൻ തകരാർ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു